കപ്പൽ സർവ്വീസിന് അടുത്ത മാസം തുടക്കമാകും

പ്രകാരമുള്ള ധാന്യവിതരണം കേരളത്തിൽ ആരംഭിച്ചു

കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാലദ്വീപ് സന്ദർശനവേളയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത് കൊച്ചി തൂത്തുക്കുടി എന്നിവിടങ്ങളിൽ നിന്നും മാലിദ്വീപ് തലസ്ഥാനത്തേക്കാണ് കപ്പൽ സർവീസ് ഇരുരാജ്യങ്ങൾക്കും തമ്മിൽ യാത്രയ്ക്കും ചരക്ക് ഗതാഗതത്തിനും ചെലവ് കുറഞ്ഞ മാർഗ്ഗമാണ് അടുത്ത മാസം ആരംഭിക്കുന്ന കപ്പൽ സർവീസ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് സേവന ദാതാക്കൾ

വകുപ്പിന്റെ നിരീക്ഷണത്തിന്റെ ഫലമായി വളം കമ്പനികൾ ഇപ്പോൾ സ്വമേധയാ തന്നെ വില നിയന്ത്രണം സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ ഗുണം കർഷകർക്ക് ലഭിക്കുന്നുണ്ടെന്നും ശ്രീ

പ്രധാനപ്പെട്ട രാസവള ങ്ങളുടെ വില കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ കുറഞ്ഞിരുന്നു

കെ വളംവില ഈ വർഷം ഓഗസ്റ്റിൽ കുറഞ്ഞു

ഇന്ത്യയുടെ മരണനിരക്ക് ആഗോള ശരാശരിയിലും താഴെയാണ്

രാജ്യത്ത് നിലവിൽ ഏഴ് ലക്ഷത്തോളം പേർ ചികിത്സയിലാണ്

ആയിരക്കണക്കിന് കമ്പനികളുമായി മത്സരിച്ച് നേടിയ വിജയം കേരളത്തിലെ സ്റ്റാർട്ടപ്പിനെ ശ്രദ്ധാകേന്ദ്രമാക്കി

ലോകോത്തരമായ വീഡിയോ കോൺഫറൻസ് സംവിധാനം തദ്ദേശീയമായ്ക്കി തയ്യാറാക്കിയ ജോയ് സെബാസ്റ്റ്യനെയും ടെക്ജൻഷ്യ കമ്പൂന്റിയ്യും ഉപരാഷ്ട്രപതി എം

സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പ് മേഖലയ്ക്കാകെ അഭിമാനമായി മാറിയ ടെക്ജൻഷ്യക്ക് ഇനിയും വലിയ ഉയരങ്ങളിലെത്താനാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സുരക്ഷിതവും തദ്ദേശീയവുമായ വീഡിയോ കോൺഫറൻസ് ആപ്പ് നിർമിക്കാനായി കേന്ദ്രസർക്കാർ സംഘടിപ്പിച്ചു ഇന്നവേഷൻ ചലഞ്ചിൽ പങ്കെടുത്താണ് ചേർത്തല ഇൻഫോപാർക്കിലെ ടെക്ജൻഷൃ ഈ നേട്ടം കൈവരിച്ചത് ഒരു കോടി രൂപയും മൂന്നുവർഷത്തേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വീഡിയോ കോൺഫറൻസിങ് ഉപകരണങ്ങൾക്കുള്ള കരാറുമാണ് സമ്മാനം ന്യൂസ് ഡെസ്ക് ആകാശവാണി

ക്ഷ്റ്റിസ് ഗോഗോയ് ഇതിനകം തന്നെ സ്ഥാനമൊഴിഞ്ഞതിന്ടാൽ പൊതുതാൽപര്യ ഹർജി അപലപനീയമാണെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി

ഭക്ഷ്യമന്ത്രി പി

മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾക്ക് ഒരു കിലോ പയർ കടല എന്നിവ സൌജനൃമായി ലഭിക്കും ഓണച്ചന്തകളിൽ എത്തുന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി അറിയിച്ചു

പുതുക്കിയ പ്രാപ്പോസൽ അംഗീകരിച്ചാണ് ആവശ്യമായ തുക അനുവദിച്ചിരിക്കുന്നത് അപകടങ്ങൾ അക്രമങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് അടിയന്തര സഹായം നൽകാനായി ആവിഷ്ക്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് പരിരക്ഷ

മോശം കാലാവസ്ഥയെ തുടർന്ന് ഇന്നത്തെ ഒത്രുച്ചിൽ ഉച്ചയോടെ അവസാനിപ്പിച്ചു

ഐ എം നിലപാടെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കോവിഡ് ബാധിതരുടെ എണ്ണം വർധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കൊപ്പം സി

ഐ എം പ്രവർത്തകർ സജീവമായി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് രംഗത്തിറങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു വൻതോതിൽ പണം മുടക്കി പ്രൊഫഷണൽ ടീമുകളെ അണിനിരത്തിയാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഇപ്പോൾ പ്രചാരണം നടത്തുന്നതെന്ന് കോടിയേരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

സി

ഈ നീക്കത്തെ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു

എസ് സഖ്യകക്ഷികളോടും സുഹൃദ് രാജ്യങ്ങൾക്കും ഒപ്പം തന്നെ നിൽക്കുമെന്ന് യു

ഡൽഹിയിലെ വൃവസായിയായ മുകേഷ് കുമാറാണ് അറസ്റ്റിലായതിൽ ഒരാൾ

പൂനെയിലും ഭോപ്പാലിലും സമാനമായി പ്രവർത്തിക്കുന്ന ഗവേഷണ സ്ഥാപനങ്ങളുടെ മാതൃകയിലായിരിക്കും ഇത് ദക്ഷിണേന്തൃയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴിവളർത്തൽ കേന്ദ്രമാണ് നാമക്കലിൽ എന്ന പ്രാധാനൃം മുൻനിർത്തിയാണ് തീരുമാനം

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളൂർത്തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതിനെ തുടർന്ന് അവശ്യ വസ്തുക്കൾ മ്മൂങ്ങാനായി ജനങ്ങൾ മാർക്കറ്റുകളിൽ എത്തുകയാണ്ട് ക്കോവിഡ് പ്രോട്ടോക്കോൾ ഉൾപ്പെടെ ഗണേശോത്സവിത്തിന് കർശന മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്